എ അധികാരത്തിൽ എത്തിയാൽ മത്സ്യത്തൊഴിലാളി കൾക്ക് പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി

ഡി എഫ് പ്രചാരണത്തിന് കോഴിക്കോട്ട് ഇന്ന് ഔപചാരിക തുടക്കം

പി കേന്ദ്രതെരഞ്ഞെടുപ്പ് സമിതി നാളെ ന്യൂഡൽഹി യിൽ ചേരും ഇടതുമുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് പൂർത്തിയാകും മലപ്പുറം ജില്ലയിൽ വെസ്റ്റ്നൈൽ പനി സ്ഥിരീകരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം

എ യുമായ റോസമ്മ ചാക്കോ അന്തരിച്ചു

എ അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ പാവപ്പെട്ട വർക്കായി അടിസ്ഥാനവേതനം നടപ്പാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചു ഒരു നിശ്ചിത തുക അടി സ്ഥാന വേതനമായി കണക്കാക്കി അതിൽ കുറവ് ലഭിക്കുന്ന പാവ പ്പെട്ടവർക്ക് ബാക്കിതുക നൽകുന്നതായിരിക്കും പദ്ധതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി

മത്സ്യ ത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലായം രൂപീകരിക്കു മെന്നും അവരുടെ ആയുധമായിരിക്കും ഈ മന്ത്രാലയമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കൻ നാവികസേനയിൽ നിന്നും ട്രോളി ങ്ങിനെ തുടർന്നും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്ന ങ്ങൾക്ക് മന്ത്രാലയം പരിഹാരം കാണുമെന്ന് രാഹുൽഗാന്ധി പറ ഞ്ഞു എല്ലാ ദുരന്തങ്ങളിലും രക്ഷകരായി മത്സ്യത്തൊഴിലാളിക ളുണ്ടാവും എന്നാൽ അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോൾ അവർ തന്നെയാണ് അവരെ സഹായിക്കുന്നതെന്ന് കോൺഗ്ര സ് അധ്യക്ഷൻ പറഞ്ഞു

ടി നിരക്കുകൾ ലഘൂകരിച്ച് ഏകനിരക്കാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആലോചിച്ച് ചെയ്യാനുറച്ച കാര്യങ്ങൾ മാത്രമേ താൻ പറയൂവെന്നും കപട വാഗ്ദാനങ്ങൾ നൽകാറില്ലെന്നും രാഹുൽഗാന്ധി വ്യക്തമാക്കി

ളു മായി രമേശ് ചെന്നിത്ത ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ

സി ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ മുകുൾ വാസ്നിക് തുട ങ്ങിയ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങളെപ്പറ്റി രാഹുൽ നേതാക്കളോട് ആരാഞ്ഞു സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവും സംഘടനാപ്രശ്ന ങ്ങളും ചർച്ചാ വിഷയമായതായി അറിയുന്നു മത്സരിക്കുന്നതിലെ പ്രയാസം നേതാക്കൾ രാഹുലിനെ അറിയിച്ചതായും റിപ്പോർട്ടു ണ്ട് ഉച്ച കഴിഞ്ഞ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ത്തുന്ന രാഹുൽഗാന്ധി കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളുമായി ലോബിയിൽ കൂടി ക്കാഴ്ച നടത്തും തുടർന്ന് ഹെലികോപ്റ്ററിൽ കാസർകോട് പെരിയ കേന്ദ്ര സർവകലാശാല ഹെലിപ്പാഡിലെത്തുന്ന അദ്ദേഹം കല്ല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടു കൾ സന്ദർശിക്കും വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് യു

എഫ് ജനമഹാറാ ലിയിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും തുടർന്ന് ആറു മണിയോടെ കരിപ്പൂരിൽനിന്ന് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയി ലേക്ക് മടങ്ങും രാഹുൽഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് കാസർകോട്ടും കോഴിക്കോട്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്തെ സ്ഥാനാർത്ഥി തർക്കത്തിൽ അനുകൂല തീരു മാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി

ചർച്ച തുടരു കയാണെന്നും പല നിർദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു

നാളെ വൈകിട്ടോടെ അന്തിമതീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്ന തെന്നും ജോസഫ് അറിയിച്ചു കോട്ടയത്ത് തോമസ് ചാഴികാടൻ പ്രചാരണവുമായി മുന്നോട്ട് പോകുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ എം

കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി യുടെ കാര്യത്തിൽ കോൺഗ്രസ് ഇടപെട്ടതായി അറിയില്ലെന്ന് അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു കോട്ടയത്തെ തർക്കം തൊട്ട ടുത്ത മണ്ഡലങ്ങളിലെ യു

എഫിന്റെ വിജയസാധ്യതയെ ബാധി ക്കുമെന്ന ആശങ്ക ശരിയല്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു

ജെ

ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് യോഗം അന്തിമരൂപം നൽകി യേക്കും

ഉത്തർപ്രദേശ് മഹാ രാഷ്ട്ര അസം പശ്ചിമബംഗാൾ ഛത്തീസ്ഗഢ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് ശനിയാഴ്ചയോടെ സംസ്ഥാനത്തെ ബി ജെ

സ്ഥാനാർഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ സംസ്ഥാന ഘടകം ശ്രമം ഊർജ്ജിതമാക്കി

എ യുടെ സ്ഥാനാർഥികളെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം നിലവിലുണ്ട്

ഡി ജെ

നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലും രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടായേക്കും തുഷാർ മത്സരി ക്കുന്നതിനെതിരേ എസ്

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ രംഗത്തുവന്നിരുന്നു കോൺഗ്രസ് നേതാക്കൾ മുസ്ലിംലീഗ് നേതാക്കളുമായി കോഴിക്കോട്ട് ഇന്ന് ചർച്ച നടത്തും കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ ചർച്ചാവിഷയമാകും ജോസഫ് ഇന്നലെ ചർച്ചയിൽ ഉന്നയിച്ചകാര്യങ്ങൾ ഘടകക്ഷികളുമായി ആലോചിച്ച് പരിഹരി ക്കാമെന്ന് ഉറപ്പുനൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചു

പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നേടിയ മുൻതൂക്കം രണ്ടാംഘട്ടത്തിലും നിലനിർത്താനാണ് മുന്ന ണിയുടെ നീക്കം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചതോടെ എൽ ഡി

എല്ലാ മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർഥികൾ പ്രധാനകേന്ദ്ര ങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കാണുന്നുണ്ട് ചിലയിടങ്ങളിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു മണ്ഡലങ്ങളിലെ പ്രമുഖ വൃക്തി കളെ നേരിൽകണ്ടും വോട്ട് നേടാൻ സ്ഥാനാർഥികൾ സമയം കണ്ടെത്തുന്നുണ്ട് അയോധ്യ ഭൂമി തർക്കക്കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ മധ്യസ്ഥ സമിതിയുടെ യോഗം ഫൈസാബാദിൽ ഇന്നും തുടരുന്നു മുൻ സുപ്രീംകോടതി ജഡ്ജി ഫക്കീർ മുഹമ്മദ് ഇബ്രാഹിം ഖലീഫുള്ള അധ്യക്ഷനായ സമിതിയിലെ അംഗങ്ങളായ ശ്രീ ശ്രീ രവിശങ്കറും ശ്രീറാം പഞ്ചുവും തർക്കക്കേസിലെ കക്ഷി കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചർച്ചകളിൽ വരുന്ന കാര്യ ങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും മധ്യസ്ഥ ചർച്ചകളുടെ രഹസ്യ സ്വഭാവം പ്രസിദ്ധീകരിക്കുന്നത് സൂക്ഷിക്കണമെന്നും സമിതി ഉത്ത രവിട്ടു സുപ്രീംകോടതി നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്

പാക്കിസ്ഥാൻ ആദ്യം അവരുടെ മണ്ണിൽ തീവ്ര വാദത്തിനെതിരെ നടപടിയെടുക്കണമെന്നും ചർച്ചയും തീവ്രവാ ദവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്നും അവർ ന്യൂഡൽഹി യിൽ പറഞ്ഞു റഫാൽ പുനഃപരിശോധനാ ഹർജികളിൽ സൂപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും

റഫാൽ യുദ്ധവിമാന ഇടപാടിനെക്കുറിച്ച് അന്വേഷണം വേണ്ടെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ജമ്മുകശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് നാട്ടുകാരൻ മരിച്ചു ഷൌക്കത്ത് അഹമ്മദ് നൈകു എന്നയാളാണ് മരിച്ചത് പൊലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു

ആരോഗ്യവകുപ്പ് ജാഗ്രതാനിർദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്ക് എത്തുന്ന വൈറസ് പിന്നീടാണ് മനുഷ്യരിലേക്ക് പകരുന്നത്

രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യരിലേക്കെത്തു ന്നത് രക്ത അവയവദാനത്തിലൂടെയും അമ്മയിൽ നിന്ന് മുലപ്പാ ലിലൂടെ കുഞ്ഞിനും ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനും അപൂർവമായി രോഗം ബാധിക്കാം എന്നാൽ നേരിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല മുതിർന്ന കോൺഗ്രസ്സ് നേതാവും മുൻ എം

എ യുമായ റോസമ്മ ചാക്കോ അന്തരിച്ചു

വാർധക്യസ ഹജമായ അസുഖത്തെ തുടർന്ന് രാവിലെ തൃശൂരിലായിരുന്നു അന്ത്യം

സി സി വൈസ് പ്രസിഡന്റായും മഹിളാ കോൺഗ്രസ്സ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇടുക്കി ചാലക്കുടി മണലൂർ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് മൂന്നു തവണ നിയമസഭയിൽ എത്തിയിരുന്നു സംസ്കാരം ഞായറാഴ്ച കോട്ടയം തോട്ടക്കാട് സെന്റ് ജോർജ്ജ് കത്തോലിക്ക പള്ളിയിൽ നടക്കും

വൃത്യസ്ഥ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത് മൂന്നുതവണ നിയമസഭയിലെത്തിയ അവർ മികച്ച നിയമ സഭാ സാമാജികയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേ ശത്തിൽ അനുസ്മരിച്ചു ഇന്ന് ലോക വൃക്കദിനം എല്ലാവർഷവും മാർച്ച് മാസം രണ്ടാം വ്യാഴാഴ്ചയാണ് ലോക വൃക്കദിനമായി ആചരിക്കുന്നത് വൃക്ക രോഗങ്ങളുടെ പ്രാധാന്യത്തെയും വ്യാപ്തിയെയുംക്കുറിച്ച് ജന ങ്ങളിൽ അവബോധമുണ്ടാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം പാലക്കാട് ജില്ലയിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി

സൂര്യാഘാത സാധ്യത ഉള്ളതിനാൽ പകൽ കഠിന വെയിൽ ഏൽക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കരമന തളിയലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീ ഷൻ കേസെടുത്തു

തിരുവനന്തപൂരം ജില്ലാപൊലീസ് മേധാവി അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്ക ണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് ആവശ്യപ്പെട്ടു പത്തനംതിട്ട പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതിയുടെ ഷട്ട റുകൾ ഉയർത്തിയ സംഭവത്തിൽ കെ എസ്

ബി യോട് റിപ്പോർട്ട് തേടിയതായി ഡാം സുരക്ഷ അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് സി

ഡാമുക ളുടെ സുരക്ഷ വർധിപ്പിക്കണമെന്ന് നേരത്തെ നിർദേശിച്ചിരുന്ന തായി അദ്ദേഹം വ്യക്തമാക്കി പെരുന്തേനരുവി സംഭവത്തിൽ അട്ടിമറി സാധ്യത അന്വേഷി ക്കുമെന്ന് കെ എസ് ഇ

ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡാമിന്റെ കാര്യ ങ്ങളെപ്പറ്റി അറിയുന്നവരാകാമെന്ന് അദ്ദേഹം റാന്നിയിൽ സ്വകാ ര്യചാനലിനോട് പറഞ്ഞു കൂട്ടുകൂടുംബങ്ങളിൽനിന്ന് അണുകുടുംബങ്ങളിലേയ്ക്ക് ജീവിതം മാറിയതോടെ സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡന ങ്ങൾ വർധിച്ചതായി സംസ്ഥാന വനിതാ കമ്മിഷൻ അംഗം ഡോ

അടൂരിൽ സംഘടിപ്പിച്ച ജാഗ്രാതാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇന്ധനവിലയിൽ നേരിയ മാറ്റം പെട്രോൾ ലിറ്ററിന് ഏഴ് പൈസ വർധിച്ചു ഡീസലിന് ആറുപൈസയാണ് കുറഞ്ഞത്

മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിലെ ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തു ചട്ടം ലംഘിച്ച് പൊതു സ്ഥലങ്ങളിൽ സ്ഥാപിച്ചവ അതത് രാഷ്ട്രീയ പാർട്ടികൾതന്നെ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ ആവ ശ്യപ്പെട്ടു